ഓപണർ ശിഖർ ധവാൻ പുറത്ത്

പ്രധാനമന്ത്രിയുടെ ഓഫീസ് വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം ആകാശവാണി ദൂരദർശൻ ന്യൂസ് എന്നിവയുടെ യുട്യൂബ് ചാനലിലും പരിപാടി തത്സമയം ലഭ്യമാകും

പ്രധാനമന്ത്രിയുടെ പ്രഭാഷണത്തെ തുടർന്നുതന്നെ മൻ കി ബാത്തിന്റെ മലയാളം പരിഭാഷ ആക്ടാശവാണി പ്രക്ഷേപണം ചെയ്യും പുനപ്രക്ഷേപണം രാത്രി എട്ടിയ്ട്

ആനന്ദിലെ അമുലിന്റെ ആധുനിക ഭക്ഷ്യ സംസ്ക്കരണ പ്ലാന്റ് ഉൾപ്പെടെയുള്ള നൂതന സംരംഭങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും ആനന്ദ് കാർഷിക സർവകലാശാലയുടെ ഭക്ഷ്യ സംസ്ക്കരണത്തിനുള്ള ഇൻക്യുബേഷൻ സെന്റർ സോളാർ സഹകരണ സൊസൈറ്റി എന്നിവയും ശ്രീ

അമുലിന്റെ തന്നെ പുതിയ ഉൽപാദന കേന്ദ്രത്തിന് ശിലാസ്ഥാപനം നിർവ്വഹിക്കുന്ന അദ്ദേഹം തുടർന്ന് ജനങ്ങള്ളെ അഭിസംബോധന ചെയ്യും അൻജാറിലുള്ള മുന്ദ്ര എൽ എൻ ജി ടെർമിനൽ അൻജാർ മുന്ദ്ര പൈപ്പ്ലൈൻ പദ്ധതി പലൻപുർ പാലി ബാമർ പൈപ്പ് ലൈൻ പദ്ധതി എന്നിവയും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും

മഹാത്മാഗാന്ധി സ്ച്ഛതാ മിഷൻ ഉൾപ്പെടെ പിവിധ ഗവൺമെന്റ് പദ്ധതികൾ ഗുജറാത്തിൽ നടപ്പാക്കിയത് മനസ്സിലാക്കുന്നതിനാണ് സംഘം എത്തുന്നത് ഗാന്ധി നഗറിലെ മഹാത്മാമന്ദിർ അഹമ്മദാബാദിലെ സബർമതി ആശ്രമം എന്നിവ സംഘം സന്ദർശിക്കും

ഇതിനായി നടപടികൾ തുടങ്ങിയതായി സംസ്ഥാനത്തെ സാമൂഹിക നീതി വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർമാരായ മൊഞ്ചൂരി ബർത്താക്കുർ മൊനിദീപ സായ്ക്യ എന്നിവർ ആകാശവാണിയോട് പറഞ്ഞു

മദർ ബോർഡ് കോട്ടിംഗ് മെഷീൻ പി സി ബി അസംബ്ലി ലോഡർ എന്നിവയെ കസ്റ്റംസ് ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കിയതായി ധനമന്ത്രാലയം അറിയിച്ചു

തീരുമാനത്തെ ഇന്ത്യൻ സെല്ലുലാർ ആൻഡ് ഇലക്ട്രോണ്ക്സ് അസോസിയേഷൻ സ്വാഗതം ചെയ്തു

ആദ്യഘട്ടത്തിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം പൂർത്തിയായെന്നും സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് അന്തിമഘട്ടത്തിലാണെന്നും സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഷലീൻ കബ്ര ശ്രീനഗറിൽ പറഞ്ഞു

മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള പട്ടികയ്ക്ക് നാളെ അന്തിമ തീരുമാനമാകുമെന്നും അദ്ദേഹം പറഞ്ഞു

ഇതിൽ നാല് നേതാക്കളെ കണ്ടെത്തുന്നവർക്ക് പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നതാണ് സുഗ്മ നഗരത്തിലെ പോലീസിനും സി

എഫ് ഉദ്യോഗസ്ഥർക്കും മുമ്പാകെയാണ് നക്സലുകൾ കീഴടങ്ങിയത്

ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നത് അവംലംബിക്കേണ്ട മാർഗ്ഗങ്ങളെക്കുറിച്ച് ചർച്ചചെയ്യുന്നതിനാണ് രണ്ട് ദിവസത്തെ യോഗം ചേരുന്നത് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് സമ്മേളനം ഉദ്ഘാടനം നിർവ്വഹിക്കുമെന്ന് പരിപാടിയുടെ ലോഗോ ആയ ഗ്യാൻകുംഭ് അനാവരണം ചെയ്ത് കൊണ്ട് മുഖ്യമന്ത്രി ത്രിവേന്ദ്രസിംഗ് റാവത്ത് പറഞ്ഞു

സമ്മേളനം വിളിക്കണമെന്ന് ഇന്ത്യ ഭീകരതയ്ക്കെതിരെ ലോകരാഷ്ട്രങ്ങൾ അണിനിരക്കണമെന്നും യു

വിശദാംശങ്ങളുമായി

സൂത്രധാരൻ പാകിസ്ഥാൻ സംരക്ഷണയിലാണ്

ന്യൂയോർക്ക് മുംബൈ ഭീകരാക്രമണങ്ങൾ സ്മാർാനത്തെകുറിച്ചുള്ള പ്രതീക്ഷകളെല്ലാം ഇല്ലാതാക്കി ഭീകരതയോടൊപ്പം കാലാവസ്ഥ വൃതിയാനമാണ് മാനവരാശി നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി പ്രകൃതിയെ നശിപ്പിച്ച് വൻ വികസനം സ്വന്തമാക്കിയ രാജ്യങ്ങൾക്ക് അവരുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് പിന്നോട്ട് പോകാനാവില്ല വികസിത രാജ്യങ്ങൾ വികസ്വര രാജ്യങ്ങളെ സഹായിക്കണമെന്നും ശ്രീമതി സുഷമ സ്വരാജ് ആവശ്യപ്പെട്ടു

സുഷമ പറഞ്ഞു

തകർന്നടിഞ്ഞ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ അനവധി പേർ കുടുങ്ങിയിട്ടുണ്ടെന്നാണ് സൂചന സുലവേസ്സി ദ്വീപിൽ വീണ്ടും തുടർ ചലനങ്ങൾ ഉണ്ടായത് രക്ഷാപ്രവർത്ത്ക്രെ ആശങ്കയിലാക്കി നഗരത്തിൽ മരിച്ചവരുടെ മൃതദ്ദേഹങ്ങൾ നീക്കം ചെയ്യാനായിട്ടില്ല ആശുപത്രികൾ തകർന്നതിനാൽ ടെന്റുകളിലാണ് പരിക്കേറ്റവർക്ക് ചികിത്സ ലഭ്യമാക്കുന്നത്

മയങ്ക് അഗർവാൾ മുഹമ്മദ് സിറാജ് എന്നിവർ ടീമിൽ ഉൾപ്പെട്ടപ്പോൾ ഓപ്പണർ ശിഖർ ധവാൻ സംഘത്തിലില്ല

മുഹമ്മദ് ഷമി ആർ അശ്വിൻക രവീന്ദ്ര ജഡേജ കുൽദീപ് യാദവ് എന്നിവരെ ടീമിൽ ഉൾപ്പെടുത്തി

പതിമൂന്ന് വയസ്സിന് താഴെയുള്ളവരുടെ വിഭാഗത്തിൽ വൃക്തിഗത നേട്ടത്തിന് അർഹനാകുന്ന രണ്ടാമത്തെ ഇന്ത്യാക്കാരനാണ് യുവ്രാജ്

ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങൾ ഓരോ സ്വർണ മെഡൽ വീതവും കരസ്ഥമാക്കി